പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഐ ഐ ടി ഖരഗ്പൂരിലെ ബിരുദ ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും

ഹ്രസ്വ ദൂര വ്യോമ മിസൈലുകൾ രാജ്യം വിജയകരമായി ന് പരീക്ഷിച്ചു

എസ് എൽ ഫുട്ബോളിൽ ഒന്നാം സ്ഥാനക്കാരായ എ

മോഹൻ ബഗാനെ സമനിലയിൽ തളച്ച് ഹൈദരാബാദ് എഫ്

ഐ

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് വിദ്യാഭ്യാസ സഹമന്ത്രി സഞ്ജയ് ധോത്രെ എന്നിവരും പങ്കെടുക്കും

ഐ ടി ഖരഗ്പൂർ ലൈവ് ഫെലോ അവാർഡ് വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥി അവാർഡ് എന്നിവയും സമ്മേളനത്തിൽ നൽകും

വികസനം ത്വരിത്പ്പെടുത്താൻ സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഹു്ഗ്ലിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേപ്പ്യാ്നമന്ത്രി പറഞ്ഞു

തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചിമബംഗാളിൽ ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്

പ്രാദേശിക ഭാഷയിലുള്ള അധൃയനം ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അസമിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ പങ്കെടുക്കും

എൽ എസ് ആർ

ഡി

ഒഡീഷ തീരത്തെ ചന്ദിപ്പൂരിലെ പരീക്ഷണ മേഖലയിലാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ പരീക്ഷണം നടന്നത് ഹ്രസ്വദൂര വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നത് ലക്ഷ്യമിട്ട് വികസിപ്പിച്ച മിസൈലുകളാണിവ രണ്ട് പരീക്ഷണങ്ങളിലും കൃത്യമായി ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞതായി ഡി

രണ്ടു വിക്ഷേപണങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഡി

ഒ സംഘത്തെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് അഭിനന്ദിച്ചു

വിചാരണ കോടതിയ്ക്ക് മുൻപാകെ തെളിവുകൾ നൽകണമെന്ന് ആവശ്യപപ്പെട്ട് ബിജെപി എം പി സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിലാണ് നടപടി

ഐ

സി ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ് സുമൻ ദുബെയ് സാം പ്രിത്രോദ അടക്കമുള്ളവർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്

യാത്രയ്ക്ക് മുൻപായി രജിസ്ട്രി മുൻപാകെ രണ്ട് ക്ടോടി രൂപ കെട്ടിവയ്ക്കണമെന്നും സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ ത്ത്മസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ്സുമർപ്പിക്കണമെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൻ അദ്ധ്യക്ഷനായ ബ്ഞ്ച് നിർദ്ദേശം നൽകി എയർസെൽ മാക്സിസ് ഇടപാടിനു പുറമേ ഐ

പി അഭിഷേക് ബാനർജിയുടെ ഭാര്യാസഹോദരിയെ സി ബി

നേരത്തെ ബാനർജിയുടെ ഭാര്യ റുജിറയേയും ഏജൻസി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു അതേസമയം അന്വേഷണ വിഷയം സംബന്ധിച്ചോ ചോദ്യം ചെയ്യാനുള്ള കാരണത്തെപ്പറ്റിയോ തനിക്ക് അറിവില്ലെന്ന് റുജിറ ഇന്നലെ ഏജൻസിയെ അറിയിച്ചു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തിരവനാണ് അഭിഷേക് ബാനർജി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കെ പോൾ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി

കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ പെട്ടെന്നുണ്ടായ വർദ്ധനവിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം

രാജ്യത്ത് ബൃഹത്തായ പ്രതിരോധ വാക്സിൻ വിതരണം നൽകുന്ന സുരക്ഷയെ മുൻനിർത്തി നാല് ഘട്ടങ്ങളിലായി അടച്ചുപൂട്ടൽ പിൻവലിക്കാനാണ് തീരുമാനം

എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ലക്ഷ്യം വച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

യിലൂടെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂവെന്നും ജനറൽ വി

ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ കണ്ണൂർ ജില്ലിയിലെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു് അദ്ദേഹം

ഓപ്പണർ റോബിൻ ഉത്തപ്പയുടെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും ഇന്നിംഗ്സുകളുടെ കരുത്തിലാണ് കേരളം ജയിച്ചത് മുൻ ഇന്തൃൻ താരവും മലയാളി പേസറുമായ എസ് ശ്രീശാന്ത് കേരളത്തിനായി അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്തു

കെ മോഹൻ ബഗാനെ സമനിലയിൽ കുരുക്കി ഹൈദരാബാദ് എഫ്